നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

ബിക്കാനീർ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വാദ്രയെ ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ചോദൃം ചെയ്യുന്നു

രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു

ഗുവാഹത്തിയിൽ തുടക്കം

ഝജ്ജാർ ജില്ലയിലെ ബദ്സയിൽ ദേശീയ കാൻസർ ചികിത്സാകേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും ഫരീദാബാദിലെ ഇ

ഐ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും പഞ്ച്കുലയിൽ ശ്രീ മാതാ മാനസാദേവി ക്ഷേത്രത്തോടനുബന്ധിപ്പ് നിർമ്മിക്കുന്ന ദേശീയ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനു്ം ശ്രീകൃഷ്ണ ആയുഷ് സർവകലാശാലയ്ക്കും പ്രധാനമ്പ്ത്രീ തറക്കല്ലിടും

സർജിക്കൽ ഓങ്കോളജി പാലിയേറ്റീവ് കെയർ ന്യൂക്സിയർ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങൾ ഇവിടെ സജ്ജമായി ഉത്തരേന്തൃയിൽ ഇ

ഐ കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഫരീദാബാദിലേത് കർണാലിലെ നിർദ്ദിഷ്ട ദീൻ ദയാൽ ഉപാധ്യായ ആരോഗ്യ സർവകലാശാലയുടെ ശിലാസ്ഥാപനവും ശ്രീ

സ്വച്ഛശക്തി പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്യും തുടർന്ന് കുരുക്ഷേത്രയിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സുന്ദർ ശൌചാലയ് പ്രദർശനം വീക്ഷിച്ചശേഷം അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായി മല്ലിക ന്യൂഡൽഹി കരോൾ ബാഗിലെ ഗുരുദ്ധാര റോഡിലെ അർപ്പിത് പാലസ് ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്

ഒരു വിവ്യാഹചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇവർ ഡൽഹിയിൽ എത്തിയത് തീപ്പിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല

പുലർച്ചെ എല്ലാവരും ഉറക്കത്തിലായതിനാൽ പലർക്കും രക്ഷപ്പെടാനായില്ല തീപിടുത്ത ത്തെകുറിച്ച് അന്വേഷിക്കാൻ ഡൽഹി ഗവൺമെന്റ് മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ട്ടിറ്ററിലൂടെ അദ്ദേഹം അനുശോചനം അറിയിച്ചു

ഐ മുൻ ഇടക്കാല ഡയറക്ടർ എം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

ഇന്ന് കോടതി പിരിയുംവരെ തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്

ബി ഐ ചോദ്യം ചെയ്യുന്നത് നാലാം ദിവസവും തുടരുന്നു

കേസുമായി ബന്ധപ്പെട്ട് തൃണമുൽ കോൺഗ്രസ് മുൻ എം പി കുനാൽ ഷോഘിനേയും സി ബി ഐ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു റോസ്വാലി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലും സി ബി

രാജീവ് കുമാറിന്റെ നേതൃത്തിൽ ബം ഗാൾ ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണസംഘമായിരുന്നു ചിട്ടി തട്ടിപ്പ് കേസ് സി ബി ഐ ക്ക് കൈമാറുന്നതിനു മുമ്പ് അന്വേഷിച്ചിരുന്നത് കേസിൽ സുപ്രധാന തെളിവുകൾ രാജീവ് കുമാർ നശിപ്പിച്ചെന്നാണ് സിബിഐ യുടെ ആരോപണം

കമ്മീഷന് വീണ്ടും നിവേദനം സമർപ്പിക്കാൻ അഭിഭാഷകനും ബിജെപി നേതാവുമായ അശ്വനി ഉപാധ്യായയോട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് ആവശ്യപ്പെട്ടു ദേശീയ തലത്തിലെ ജനസംഖൃക്കു പകരം ഓരോ സംസ്ഥാന്റ്തെയും ജനസംഖൃയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ പദവി പ്രുന്റർ നിർവചിക്കണമെന്നാണ് ആവശ്യം ഹർജിക്കാരന്റെ സംസ്ഥാനങ്ങളിലും ഹിന്ദു സമുദായിം ന്യൂനപക്ഷമാണെന്നും എന്നാൽ ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ലെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു

കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് തവണ അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് അധികൃതർ ചോദ്യം ചെയ്തിരുന്നു

പരിക്കേറ്റ ഒരു ജവാനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സുരക്ഷാ സേന വക്താക്കൾ അറിയിച്ചു ഒന്നോ രണ്ടോ ഭീകരർ ഇപ്പോഴും അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് സൈനിക വക്താക്കൾ അറിയിച്ചു

വാജ്പേയിയുടെ പൂർണ്ണകായ ഛായ ചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപത്രി രാം നാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്തു നിരവ്വധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി മല്ലിക

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ കേന്ദ്രമന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടിനേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പേയുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു പൊതുതാൽപര്യ വിഷയങ്ങൾ നിരന്തരം ഉന്നയിച്ച അടൽ ബിഹാരി വാജ്പെയ് ആശയങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തെച്ചൊല്ലിയുള്ള പ്രതിപക്ഷ സി

ഐ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നും സഭയിൽ ബഹളമുണ്ടായി കേസിൽ ടി വി രാജേഷ് എം

എ യ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി സമർപ്പിച്ച കുറ്റപത്രം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ പി

വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിദ്ധ്യത്തിൽ മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറക്കുക

കലാപരിപാടികൾ ഇന്ന് വൈകിട്ട് നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും

ഇന്ത്യൻ വ്യോമസേനയും സംസ്ഥാന ഭരണകൂടവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്

ആദായ നികുതി വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തിരിച്ചിൽ നടത്തിയത് മൂന്ന് ഹവാല സംഘങ്ങളുടെ അനധികൃത പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരിച്ചലിലാണ് ഇത്രയും പണം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു

താലിബാനുമായുള്ള സമാധാന ചർച്ചയിൽ അഫ്ഗാൻ ഗവൺമെന്റ് പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ജയിംസ് മാറ്റിസ് രാജിവച്ച ഒഴിവിലാണ് ശ്രീ ഷനാഹൻ നിയമിതനായത്

സ്വർണവില കുറഞ്ഞു

നിലവിലെ വനിതാ ചാമ്പ്യൻ സൈന നെഹ്വാൾ റണ്ണർ അപ്പ് പി

സിന്ധു എന്നിവർ മത്സരിക്കും